ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം ഏഴാംഘട്ടത്തിന്റെ സൂക്ഷ്മ പരിശോധന ഇന്ന്

ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഐ എസ് ആണെന്നതിന് വൃക്തമായ തെളിവുണ്ടെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രീപാല സിരിസേന

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ ന്താക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയാണ് വിശദാംശങ്ങളുമായി അർച്ചന

ജെ

നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബീഹാറിലെ മുസാഫിർപൂരിലും ഉത്തർപ്രദേശിലെ ഇന്ന് ബഹ്റായിച്ചിലും ബാരാബാങ്കിയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹൂൽ ഗാന്ധി മധ്യപ്രദേശിലെ ടിക്കാംഘട്ട് ദമോഹ്പന്ന എന്നിവിടങ്ങളിലെ റാലികളെ അഭിസംബോധന ചെയ്യും

ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാജസ്ഥാനിലെ ആൽവാറിലും ദൌസയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്

ഏഴാമത്തേയും അവസാനത്തേയും ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദേശ പത്രികകളുടെ സൂക്ഷമ പരിശോധന ഇന്ന് നടക്കും

ഇന്നലെയായിരുന്നു നാമനിർദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം

ഉന്നത നേതാക്കൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തുടർ നടപടികൾക്കായി യോഗം ചേരുന്നത് ഈ യോഗത്തെ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ മാധ്യമങ്ങളോട് നേരത്തെ കാര്യങ്ങൾ വൃക്തമാക്കിയിരുന്നു

ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി ബി

പി പ്രസിഡന്റ് അമിത് ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവർക്കെതിരെ ലംഘിച്ചതായി ഉയർന്ന പരാതികളാണ് കമ്മീഷൻ ചട്ടം ചർച്ചയ്ക്കെടുക്കുക ഇതോടൊപ്പം ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും ഭരണകക്ഷിയായിരുന്ന പി ഡി പിയ്ക്ക് നൽകിയിരുന്ന പിന്തുണ ബി ജെ പി പിൻവലിച്ചതോടെ ഇവിടെ മന്ത്രിസഭ ഇല്ലാതാകുകയായിരുന്നു

ഈസ്റ്റ് കടുങ്ങല്ലൂർ സർവ്വീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വോട്ടിങ് യന്ത്രത്തിൽ കാണിച്ചതിനെ തുടർന്നാണ് ഈ ബൂത്തിൽ നടന്ന പോളിംഗ് അസാധുവാക്കിയത്

ബി ജെ പി എം പി സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയിലാണ് നോട്ടീസ് അയച്ചത്

രാഹുൽഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വം ഉണ്ടെന്നാണ് സുബ്രഹ്മണ്യം സ്വാമിയുടെ ആരോപണം

പ്രദേശത്ത് സുരക്ഷാ ഉയരുന്ന ഭീഷണി അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു ശ്രീമതി നിർമലാ സീതാരാമൻ ചൈനീസ് റഷ്യൻ പ്രതിരോധ മന്ത്രിമാരുമായി ഉഭയകക്ഷിതല ചർച്ച നടത്തി കിർഗിസ് കരസേനാ മേധാവിയുമായും അവർ കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി പ്രതിരോധ വിഷയങ്ങൾ ഇരുവരും ചർച്ചു ചെയ്തു

നാളെ ഫോനി തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ ഇടയുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടാകുന്ന സ്ഥിതിഗതികൾ ദേശീയ ക്രൈസിസ്സ് മാനേജ്മെന്റ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് വിലയിരുത്തി നാളെയോടെ ഫോനി വടക്ക് പടിഞ്ഞാറായി നീങ്ങി പിന്നീട് ക്രമേണ വടക്ക് കിഴക്കോട്ട് ദിശ മാറാനാണ് സാധ്യത തെക്കൻ തീരത്തെ സംസ്ഥാനങ്ങളിൽ ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് സംസ്ഥാന ഗവൺമൈന്റുകളും കേന്ദ്ര ദുരന്ത നിവാരണസേനയും ഇന്ത്യൻ കോസ്റ്ഗാർഡും അതീവ ജാഗ്രതയിലാണ് വരും ദിവസങ്ങളിലും സമിതിയോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് സംസ്ഥാന ഗവൺമെൻ്റുകൾ മതിയായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ന്റിർദ്ദേശപ്രകാരമാണ് ഫണ്ട് അനുവദിക്കുന്നത്

റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ എൻ ഐ

പാലക്കാട് സ്വദേശി റിയാസ് അബുബക്കറിനെയാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് ചാവേറാക്രമണം നടത്താൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായി എൻ

അറിയിച്ചു ഇതിനു പുറമെ ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച സഹ്രാൻ ഹാഷിമുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും എൻ

ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാൾക്ക് പുറമെ രണ്ടു പേരെക്കൂടി എൻ

ചോദ്യം ചെയ്തുവരികയാണ്

ലോക്കത്ത് നിന്ന് ഭീകരവാദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടർുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി

രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച വൃക്തമായ ലഭിച്ചിട്ടുണ്ട് ഒരു വാർത്താ ചാനലിന് നൽകിയ തെളിവ് അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

പത്തുലക്ഷം രൂപ പിഴ ഈടാക്കി

സംസ്കാരം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ നടക്കും തിരുവനന്തപുരം സ്വദേശിയാണ്

സ്വർണവില കുറഞ്ഞു

കിരീടം രണ്ടാം തവണയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ബാഡ്മിൻൺ താരം സൈന നെഹ്വാൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്